വിപണി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അംഗീകാരം കാർഷിക് വീലസ്ഥിരതാ ഓർഡിനൻസിനും അനുമതി

രോഗമുക്തരായി

മുഖ്യമന്ത്രി

ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത് കാർഷിക മേഖലയിലെ പരിഷ്കരണങ്ങൾ കാർഷികോൽപ്പന്ന വിപണിയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ട്ടീറ്റ് ചെയ്തു

വില സ്ഥിരതാ ഓർഡിനൻസ് വിൽപനയിലും കയറ്റുമതി രംഗത്തും കർഷകർക്ക് കൂടുതൽ സ്വാതന്ത്യം പ്രദാനം ചെയ്യുമെന്നും ശ്രീ

മന്ത്രിസഭാ പ്രതീരുമാനങ്ങൾ ഗ്രാമീണ ഇന്ത്യയിൽ ഗുണകരമായ പരിവർത്തനം വരുത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്മോറിസണുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക നേരത്തെ നിശ്ചയിച്ചിരുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം കോവിഡ് പശ്ചാത്തലത്തിൽ നടന്നിരുന്നില്ല

നരേന്ദ്രമോദി ഉഭയകക്ഷി വിർച്ചൽ ഉച്ചകോടി നടത്തുന്നത് ഏപ്രിൽ ആറിന് ഇരുനേതാക്കളും തമ്മിൽ ടെലഫോൺ സംഭാഷണം നടന്നിരുന്നു

കാർഷിക മേഖലയിൽ പരിവർത്തനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശൃത്തോടെയുള്ളതാണ് നിയമഭേദഗതി

വാണിജ്ച് ർക്ത്തുള്ളവർ തൊഴിൽ വിദഗ്ദ്ധർ ഗവേഷകർ എഞ്ചിനീയർമാർ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവർക്കാണ് അനുമതി നൽകുന്നത്

താൽപര്യമുള്ളവർ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ നിന്ന് പുതിയ ബിസിനസ് വിസയോ തൊഴിൽ വിസയോ നേടണമെന്ന് കേന്ദ്ര ആഭ്യന്ത്ര മന്ത്രാലയം അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താ വിഭാഗം മേധാവി ഡോ

ഉത്തർപ്രദേശ് ട്രൂ ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ പശ്ചിമബംഗാൾ എന്നീട്ട് സംസ്ഥാനങ്ങളിലേയ്ക്കാണ് കൂടുതൽ സർവ്വീസ് നടത്തിയത്

ഇവയിൽ ഏഴെണ്ണം കേരളത്തിലേയ്ക്കാണ്

ദൂബായിൽ നിന്ന് ജയ്പൂർ ഹൈദരാബാദ് മധുര കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേയ്ക്കും അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേയ്ക്കുമാണ് സർവ്വീസ് സൌദി അറേബ്യയിൽ നിന്ന് മൂന്ന് വിമാനങ്ങളുണ്ട്

കുവൈറ്റിൽ നിന്ന് ഡൽഹി കോഴിക്കോട് എന്നിവിടങ്ങളിലേയ്ക്കും ഖത്തറിൽ നിന്ന് ലഖ്നൌ കണ്ണൂർ ഒമാനിൽ നിന്ന് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേയ്ക്കും ഓരോ സർവ്വീസ് ഉണ്ടാകും

എത്ര വിമാനങ്ങൾക്ക് അനുമതി വേണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാല്യ്യത്തോട് ചോദിച്ചിട്ടുണ്ട് വന്ദേഭാരത് ദൌതൃത്തിൽ വിമാനങ്ങൾ പ്പ്രുന്നതിന് സംസ്ഥാനം യാതൊരു നിബന്ധനയും വച്ചിട്ടീല്ല്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചോദിച്ച എല്ലാ ഫ്ട്ക്ളെറ്റുകൾക്കും അനുമതി നൽകി

ഇവയ്ക്കെല്ലാം കേരളം അ്ണുമൃതി നൽകിയിട്ടുണ്ട്

പഴയ നിരക്ക് പ്രകാരമാണ് സർവ്വീസ് നടത്തുന്നത്

കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കാസർകോട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് കണ്ണൂർ നൽകിയിട്ടുള്ളത്

ഐ ബി ഫാക്ട് ചെക്കിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്